ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും

ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടു

ഹാഫിസ് സെയ്ദ് നേതൃത്വം നൽകുന്ന ഭീകര സംഘടനയായ ജമ അത് ഉത് ദവയുടെ നിരോധനം നീക്കിയ പാക് നടപടി ഉത്കണ്ഠ ഉളവാക്കുന്നതെന്ന് അമേരിക്ക

ഇന്തൃ വെസ്റ്റിൻഡീസ് അഞ്ചാം ഏകദിനം നാളെ തിരുവന്തപുരത്ത്

സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഹൃദയങ്ങളുടെ ഐക്യവും മാതൃരാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായഏകീകരണവും അടയാളപ്പെടുത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വിശദാംശങ്ങളുമായി ലിഖിത വിജയൻ

അനാച്ഛാദന ചടങ്ങിൽ പ്രധാനമന്ത്രിയും മറ്റു വിശിഷ്ടാതിഥികളും ചേർന്ന് മണ്ണും നർമ്മദാനദിയിലെ ജലവും ഒരു കലശത്തിലാക്കും

നരേന്ദ്രമോദി പ്രതിമയിൽ പ്രതീകാത്മക അഭിഷേകം നടത്തും പിന്നീട് സദസിനെ അഭിസംബോധന ചെയ്യുക്സൂ അദ്ദേഹം ഐകൃത്തിന്റെ മതിൽ ഉദ്ഘാടനം ചെയ്യും മ്യൂസിയം പ്രിദ്ദർശ്നം സന്ദർശന ഗ്യാലറി എന്നിവയുമായി വിനോദസഞ്ചാര സാധ്യതകളും ഏകതാ പ്രതിമ തുറന്നിടുന്നു

ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങളുടെ പ്രകടനവും സാംസ്കാരിക സംഘങ്ങളുടെ കലാപ്രകടനങ്ങളും പ്രതിമ അനാച്ഛാദന ചടങ്ങിന് മാറ്റ് കൂട്ടും ദേശീയതയുടെ ഊർജത്താൽ ഏകതയുടെ ഭൂമിശാസ്ത്രം കെട്ടിപ്പടുക്കാൻ സർദാർ വല്ലഭ്ഭായി പട്ടേലിന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചതായി നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു

ജെയ്ഷെ ഇ മൊഹമ്മദ് എന്ന ഭീകര സംഘടനയിലെ കമാന്ററായ ഉസ്മാൻ ഹൈദരാണ് കൊല്ലപ്പെട്ടവരിൽ ഒരാളെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ സ്ഥിരീകരിച്ചു ജെയ്ഷെ ഇ മൊഹമ്മദ് തലവൻ മൌലാന മസൂദ് അസറിന്റെ അടുത്ത ബന്ധു കൂടിയാണ് കൊല്ലപ്പെട്ട ഉസ്മാൻ അസറിന്റെ മൂത്ത സഹോദരൻ അമീർ മുക്തറിന്റെ പുത്രനാണ് ഉസ്മാൻ ജെയ്ഷെ ഇ മൊഹമ്മദിന്റെ തന്നെ മറ്റൊരു ഭീകരരനും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു മൂന്നാമത്തെ ഭീകരൻ പ്രദേശവാസിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്

മിഡൂര മേഖലയിൽ തീവ്രവാദി സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഭീകരരുമായി ഏറ്റുമുട്ടൽ ഉണ്ടായത്

നീല്ലവിലെ ആഗോള ആഭ്യന്തര സാമ്പത്തിക സ്ഥിതി യോഗം വിലയിരുത്തുള്ളൂ ഗവൺമെന്റ് മറ്റ് നിയന്ത്രണ ചുമതലയുള്ള സ്ഥാപനങ്ങളും സ്ഥിതിക്കുള് നിരീക്ഷിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് യോഗത്തിൽ തീരുമാനമായി

ഐ ഗവർണർ സെബി ചെയർമാൻ പെൻഷൻ ഫ്ലിട്ട് ഇൻഷുറൻസ് റഗുലേറ്ററി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ തലവൻമൂർ ഉൾപ്പെടുന്നതാണ് എഫ്

റിസർവ് ബാങ്ക് ഗവർണർ ഡോ ഊർജ്ജിത് പട്ടേൽ സാമ്പത്തിക മേഖലയിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സാമ്പത്തിക മേഖലയിൽ കമ്പ്യൂട്ടർ എമർജൻസി റസ്പോൺസ് ടീം സ്ഥാപിക്കുന്നതിലുള്ള പുരോഗതിയും യോഗം വിലയിരുത്തും

സി സബ്കമ്മിറ്റിയുടെ ഗവർണർ പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തും

എ പ്രത്യേക കോടതി കുറ്റം ചുമത്തി

കുവൈറ്റ് വിദേശകാര്യ മന്ത്രി ഷേഖ് സബഹ് അൽ ഖാലിദ് അൽ സബഹുമായും കുവൈറ്റ് എമിർ ഷേഖ് സബഹ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബഹുമായും അവർ കൂടിക്കാഴ്ച നടത്തും പടിഞ്ഞാറൻ ഏഷ്യാ സന്ദർശനത്തിന്റെ രണ്ടാമത്തെയും അവസാനത്തെയും പാദത്തിൽ ഇന്നലെ രാത്രിയാണ് ശ്രീമതി സുഷമ സ്വരാജ് കുവൈറ്റിലെത്തിയത് കൂവൈറ്റിലെ ഇന്ത്യൻ സമൂഹവുമായി ആശയവിനിമയം നടത്തിയ കേന്ദ്രമന്ത്രി ഇന്ത്യൻ എംബസിയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി

ഖത്തർ സന്ദർശിച്ച ശേഷമാണ് വിദേശകാര്യ മന്ത്രി കുറ്റെറ്റിലെത്തിയത്

ഇത് ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിലിന്റെ നേതൃത്വത്തിലെടുത്ത ഭീകര വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വിപരീതമാണെന്നും രാജ്യത്തെ അപകടത്തിലാക്കുമെന്നും അമേരിക്ക വ്യക്തമാക്കി ഇക്കാര്യത്തിൽ അതീവ ആശങ്കയുണ്ടെന്നും യു എസ് വക്താവ് അഭിപ്രായപ്പെട്ടു

അതിർത്തിയിലെ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ ഇത്തരം യോഗങ്ങൾ നിർണായകമാണെന്ന് ഇരു സേനാ വിഭാഗങ്ങളും വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചിട്ടുള്ള കരാറുകൾ പാലിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇരുപക്ഷവും പറഞ്ഞു ബ്രിഗേഡിയർ സുബിൻ ഭട്നഗറിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘവും സീനിയർ കേണൽ യാവോ ഷി ചെങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് സംഘവും തമ്മിലായിരുന്നു ചർച്ച

അമേരിക്കയിലെ മുതിർന്ന വ്യവസായ വാണിജൃ പ്രമുഖർ ഇന്നലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു ഇന്ത്യ ലീഡർഷിപ്പ് ഉച്ചകോടിയുടെ വിശദാംശങ്ങൾ നേതാക്കൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു കഴിഞ്ഞ നാലു വർഷമായി രാജ്യത്തെ സാമ്പത്തിക മേഖലയിൽ നടത്തിവരുന്ന പരിഷ്ക്കൂരണ നടപടികൾ അത്യന്തം ഗുണകരമാണെന്ന് നേതാക്കൾ പ്രധാനമന്ത്രിട്ടിയാട്ട് പറഞ്ഞു

മുന്ന് ഇറാൻ പൌരന്മാർക്ക് നേരെ ആക്രമണമുണ്ടായ പശ്ചാരിക്കുളത്തിൽ ഇറാനിലെ അംബാസിഡറെ ഡെന്മാർക്ക് തിരിച്ചുവിളിച്ചു

ആവാസ് വിമോചനത്തിനായി പ്രവർത്തിക്കുന്ന അറബ് സ്ട്രഗിൾ മൂവ്മെന്റിലെ അംഗങ്ങളായ ഇറാനിയൻ പൌരന്മർക്ക് നേരെ ഇറാനിയൻ ഇന്റലിജൻസ് സർവീസ് ആക്രമണത്തിന് ശ്രമിക്കുന്നതായി ഡെന്മാർക്ക് ഇന്റലിജൻസ് സർവീസ് മേധാവി ഫിൻ ബോർച്ച് ആന്റേഴ്സൺ നേരത്തെ ആരോപിച്ചിരുന്നു ഈ ആരോപണങ്ങൾ നിഷേധിച്ച ഇറാൻ ഇത് ഇറാനെതിരെയുള്ള യൂറോപ്യൻ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അറിയിച്ചു

നിർമാണ മേഖലയിലെ പൊടി വാഹനങ്ങൾ എന്നിവയ്ക്ക് പുറമെ അയൽ സംസ്ഥാനങ്ങളിലെ പാടങ്ങളിലെ കത്തിക്കൽ എന്നിവ ഇതിന് കാരണമായതായി അധികൃതർ പറയുന്നു

ഇത് വളരെ കുറഞ്ഞ ഗുണനിലവാരമാണ് പകൽ സമയത്താണ് മലിനീകരണം കൂടുതൽ വീടിന് പുറത്തുള്ള എല്ലാ കായിക പ്രവർത്തനങ്ങളും ഒഴിവാക്കണമെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ളൂ ദ്രേപ്പ്സ്വം ചുമതല വഹിക്കുന്ന മന്ത്രിമാരും വകുപ്പു സെക്രട്ടറിമാരും മ്യോഗ്ഗത്തിൽ പങ്കെടുക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാട്ടുന് ചെയ്യുന്ന യോഗത്തിൽ സമിതി ഉന്നതാധികാര സമിതി അധ്യക്ഷ്ടൻ ിജസ്റ്റിസ് സിരിജഗൻ ഉപദേശക സമിതി അധ്യക്ഷൻ ടി

ഇന്നത്തെ പരിശീലനത്തിനുശേഷം ടീം നാളെ കളത്തിലിറങ്ങും